ഇന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഗുരുദാസ്പൂരിൽ റാലിയേയും ശ്രീ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും

ഒരുക്കുന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത പകൽ ഹർത്താൽ തുടരുന്നു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും

ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും നൂതന സംരംഭങ്ങളുടെയും വിശാലമായ സാധ്യതകളും ശാസ്ത്രാവബോധവും വളർത്തുക എന്നത് ശ്രീ

ഭാവിഭാരതം ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും എന്നതാണ് ഈ വർഷത്തെ ശാസ്ത്ര കോൺഗ്രസിന്റെ ആശയം രാജ്യത്തെ കാർഷിക മേഖലയ്ക്കും നൂതന സംരംഭങ്ങൾക്കും ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദൃയുടെയും സാധൃതകൾ പ്രയോജനപ്പെടുത്താൻ ശാസ്ത്ര കോൺഗ്രസ് വഴി ഒരുക്കും

ദേശീയ ആരോഗ്യ ഏജൻസിയെ ദേശീയ ആരോഗ്യ അതോറിറ്റിയായി പുനഃസംഘടിപ്പിക്കാനുള്ള നിർദ്ദേശത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി കൂടുതൽ വിവരങ്ങളുമായി അർച്ചന

പലിശ ഏകീകരണ പദ്ധതിയുടെ കീഴിൽ കയറ്റുമതിക്ക് മുൻപും പിൻപുമുള്ള ചരക്ക് നീക്കത്തിന് വ്യാപാരികൾക്ക് ഇത് ഗുണകരമായിരിക്കും

നയ തീരുമാനങ്ങൾ വേഗത്തിൽ നടപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രിസഭ തിരുമാനം ശ്രീരിയിച്ച കേന്ദ്ര മന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു വിജയ ബാങ്കിനേയും ദീനാ ബാങ്കിനേയും ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിപ്പിക്കാനും തീരുമാനമായി

രാജ്യനിർമ്മാണ പ്രവർത്തനങ്ങളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പ് വരുത്താനും നേതൃപാടവവും വ്യക്തിത്വ വികസനവുമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സ്ംസ്ഥാനത്തെ ജനങ്ങളുടെ ഭാഷാപരമായ വൃക്തിത്വവും സാംസ്കാരിക താല്പരൃങ്ങളും നിലനിർത്താൻ തീരുമാനം പ്രയോജനകരമാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ഗുൽഷൺപോറ ത്രാൾ മേഖലയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ ഏറ്റുമുട്ടലിൽ മൂന്ന് സൈനികർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ ശ്രീനഗറിലെ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി ഭീകരരെ കണ്ടെത്താനായിട്ടില്ല മേഖലയിൽ സുരക്ഷാസേന തെരച്ചിൽ തുടരുകയാണ് രഹസൃ വിവരത്തെ തുടർന്ന് സുരക്ഷാ സംഘം നടത്തിയ തെരച്ചിലിന് ഒടുവിലായിരുന്നു ഏറ്റുമുട്ടൽ

പല ജില്ലകളിലും അക്രമ സംഭവങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്

എസ് ആർ ടി സി ബസ്സുകൾ ഓടുന്നില്ല കടകമ്പോളങ്ങൽ ഇന്നു തുറക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പലയിടത്തും കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്

ഐ എം സിപി

ചെന്നൈയിൽ കെ ടി

സി ഓഫീസിലും നോർക്ക ഓഫീസിലും അക്രമം ഉണ്ടായതായും മുഖ്യമന്ത്രി പറഞ്ഞു

ഓസീസിനെതിരായ നാലാമത്തേയും അവസാനത്തേയും ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിൽ

നേരത്തെ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ ചേതേശ്വർ പൂജാരയുടെ സെഞ്ചറിയുടെ മികവിലാണ് സ്കോർ പടുത്തുയർത്തിയത്

സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു പത്രപ്രദ്ധർത്ത്കയെ അധിക്ഷേപിച്ച ശ്രീ രാഹുൽഗാന്ധിയുടെ നടപട്ടി അങ്ങേയറ്റം അപലപനീയമാണെന്ന് ശ്രീ ജെയ്റ്റ്ലി പ്പറ്ഞ്ഞു അടിയന്തരാവസ്ഥയിലൂടെ ഏകാധിപതൃം തെളിയിട്ട് ഭരണാധികാരിയുടെ ചെറുമകനാണ് താനെന്ന് രാഹുൽ ഗാന്ധി ഇതിലൂടെ തെളിയിച്ചതായി അദ്ദേഹം പറഞ്ഞു

കപട സ്വാതന്ത്ര്യവാദികൾ ഇക്കാരൃത്തിൽ മൌനം പാലിച്ചിരിക്കുകയാണെന്നും ശ്രീ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു

രാജ്യത്തെ പാവപ്പെട്ട ജനവിഭാഗത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ നിർണായക ഘടകമായി പ്രവർത്തിക്കാൻ പദ്ധതിക്ക് കഴിഞ്ഞതായി പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു വനിതാ ശാക്തീകരണം ഗ്രാമീണ ജനതയുടെ ആരോഗ്യ പരിരക്ഷ എന്നിവയും ഉറപ്പാക്കാൻ പദ്ധതിക്ക് കഴിഞ്ഞതായി പ്രധാനമന്ത്രി പറഞ്ഞു

്രാജ്യത്തെ ഏറ്റവും വേഗതയേറിയതും വൈഫെ ഉൾപ്പെടെ ലോകോത്തര സേവനങ്ങൾ ഉള്ളതുമാണ് പുതിയ ട്രെയിനെന്ന് റെയിൽവേ മന്ത്രി പിയൂഷ് ഗോയൽ പറഞ്ഞു

ഇതോടെ ഡൽഹി വാരാണസി യാത്ര ദൈർഘ്യം പതിനൊന്നര മണിക്കൂറിൽ നിന്ന് എട്ടു മണിക്കൂറായി കുറയും